വിതരണത്തിനുള്ള പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ന് തറക്കല്ലിടും

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അനാച്ഛാദനം ചെയ്തു

പത്രിക പിൻവലിയ്ക്കാനുള്ള അവസാനദിനം ഇന്ന്

വിലയിരുത്താൻ തെരഞ്ഞടുപ്പ് കമ്മീഷൻ തെലങ്കാന സന്ദർശനത്തിൽ

കമ്മീഷൻ യോഗത്തിൽ പങ്കെടുക്കാനായി വിദേശ കാര്യമന്ത്രി സുഷമാ സ്വരാജ് ലാവോസിലേക്ക് പുറപ്പെട്ടു

സിഡ്നിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ വിവിധ മേഖലകളിലെ നിക്ഷേപങ്ങളിൽ ഉഭയകക്ഷി സഹകരണം ഉറപ്പാക്കുന്ന ധാരണാ പത്രങ്ങൾ കൈമാറി ഇരുരാജ്യങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന സഹകരണത്തിന്റെ തെളിവാണ് രാഷ്ട്രപതിയുടെ ആസ്ട്രേലിയൻ സന്ദർശനമെന്നും ഇന്ത്യ ഓസ്ട്രേലിയ ഉഭയകക്ഷി സഹകരണത്തിന് ഇത് കൂടുതൽ ആക്കം കൂട്ടുമെന്നും ഓസ്ട്രേലിയൻ ഹൈ കമ്മീഷണർ ഡോ

സിഡ്നിയിലെ പരാമാറ്റയിൽ മഹാത്മാഗാന്ധി പ്രതിമ രാഷ്ട്രപതി അനാച്ഛാദനം ചെയ്തു

യോഗത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ സമൂഹത്തെയും ഇരുവരും അഭിസംബോധന ചെയ്തു

സൈനിക ക്യാമ്പിന് നേരേ ഭീകരർ ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് വെടിവയ്പ്പുണ്ടായത്

ന്യൂഡൽഹിയിൽ കോടതി ഉത്തരവ് പ്രകാരം മുദ്ര ചെയ്യപ്പെട്ട കെട്ടിടത്തിന്റെ സീൽ ശ്രീ

പാർലമെന്റ് അംഗമായ ശ്രീ തിവാരി കൂടുതൽ ഉത്തരവാദപരമായി പെരുമാറേണ്ടതായിരുന്നുവെന്നും സംഭവം അത്യന്തം വേദനജനകമാണെന്നും ജസ്റ്റിസ് മദൻ ബി ലോകൂർ അഭിപ്രായപ്പെട്ടു

സംസ്ഥാനത്തെ എട്ട് ജില്ലകളിൽ ഈ മാസം അവസാനത്തോടെ പോളിയോ തുള്ളി മരുന്ന് വിതരണ പരിപാടിക്കും തുടക്കമാവും

ചുമതലാബോധമുള്ള ഗവൺമെന്റ് രൂപ്പീക്രിക്കുന്നതിൽ ഉപരി അധികാരം കൈയ്യാളുന്നത് ലക്ഷ്യം വച്ചുള്ള കക്ഷികളുടെ സഖ്യം ചേരലായി ഗവർണ്ണർ ഇതിനെ വിശേഷിപ്പിച്ചു ദൂരദർശന് അനുവദിച്ച മുഖാമുഖത്തിലാണ് ജമ്മുകാശ്മീർ ഗവർണർ ഇക്കാര്യം വ്യക്തമാക്കിയത്

മോദി അഭിസംബോധന ചെയ്യുമെന്ന് ബിജെപി പ്രവർത്തകർ മാധ്യമങ്ങളോട് പറഞ്ഞു ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ നേതൃത്വത്തിൽ തെലങ്കാനയിൽ ഞായറാഴ്ച മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കും

പരിപാടിയുടെ അൻപതാം പതിപ്പാണിത് മൻ കി ബാത്തിലൂടെ നിരവധി പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെകുറിച്ച് പ്രധാനമന്ത്രി പൊതുജനങ്ങളുമായി ആശയ വിനിമയം നടത്തി വരികയാണ്

ചലച്ചിത്ര് സംസ്കാരം പ്രചരിപ്പിക്കുന്നതിലും രാജ്യമെമ്പാടും ചലച്ചിത്രോ്ത്സവങ്ങൾ സംഘടിപ്പിക്കുന്നതിലും അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിനുള്ള പങ്ക് എന്ന വിഷയത്തിലാണ് ഇന്ന് ഓപ്പൺ ഫോറം സംഘടിപ്പിക്കുക ചലച്ചിത്ര താരം രാഹുൽ റവായ് ഐ

എഫ് ഐ തലവൻ ചൈതന്യ പ്രസാദ് ഗോവ എന്റർടേയ്ൻമെന്റ് സൊസൈറ്റി വൈസ് ചെയർമാൻ രാജേന്ദ്ര തലക് തുടങ്ങിയ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും

മുഖ്യതെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒ

റാവത്തിന്റെ നേതൃത്ത്തിലുള്ള ഉന്നതതല സംഘം രണ്ടു ദിവസത്തെ സന്ദർശനത്തിന്റായി ഇന്ന് തെലങ്കാനയിൽ എത്തി തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തും അംഗീകൃത രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളു്മായി ഉന്നതതല സംഘം ചർച്ച നടത്തും ഭിന്നശേഷിക്കാർക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് ഒരുക്കിയിട്ടുള്ള പ്രത്യേക സംവിധാനങ്ങളും സംഘം അവലോകനം ചെയ്യും

വോട്ടർമാരുടെ വിശ്വാസം നേടിയെടുക്കുന്നതിനായി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ മധ്യപ്രദേശിൽ ഉടനീളം സന്ദർശനത്തിലാണ് മിസോറാമിൽ തപാൽ ബാലറ്റുകളിലൂടെ വോട്ട് ചെയ്യുന്നതിനുള്ള അവസാന തീയതി ഇന്ന് വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടി നൽകി

ഉഭയകക്ഷി സഹകരണത്തിനുള്ള ഒമ്പതാമത് ഇന്ത്യ ലാവോസ് സംയുക്ത കമ്മീഷന്റെ യോഗത്തിൽ ശ്രീമതി സ്വരാജ് സഹ അധ്യക്ഷയാകും ലാവോസ് വിദേശ കാര്യമന്ത്രി സല്യൂമ്ക്സേ കൊമസിതുമായി കൃഷി പ്രതിരോധം വാണിജ്യം നിക്ഷേപം ശാസ്ത്ര സാങ്കേതിക ശാസ്ത്രം ഊർജ്ജം തുടങ്ങി നിരവധി വിഷയങ്ങളെക്കുറിച്ച് ശ്രീമതി സ്വരാജ് ചർച്ച നടത്തും ലാവോസ് പ്രധാനമന്ത്രി തൊങ്ലൌൻ സിസൌലിതുമായി കൂടിക്കാഴ്ച നടത്തുന്ന വിദേശകാര്യ മന്ത്രി ലാവോസിലെ ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും

മേഖലയിൽ വൈദ്യുതി ബന്ധം പുനഃ സ്ഥാപിക്കുന്നതിനായി കനത്ത മഴ അവഗണിച്ച് ഉദ്യോഗസ്ഥർ രാവും പകലും പ്രയത്നിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു

ഇന്നലെ രാത്രി നടന്ന അപകടത്തിൽ ട്രെയിൻ ഗാർഡിന് പരിക്കേറ്റിട്ടുണ്ട് റെയിൽ പാളങ്ങൾ വൈദ്യുത വിതരണ ലൈനുകൾ എന്നിവ നശിച്ചതോടെ ഡൽഹി ലക്നൌ പാതയിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു പാളത്തിലുണ്ടായ വിള്ളലാകാം അപകടത്തിന് കാരണമെന്ന് റെയിൽവേ അധികൃതർ ആകാശവാണിയോട് പറഞ്ഞു

സി